അക്കാദമിക രംഗത്തെ നേതൃത്വും വിദ്യാഭ്യാസ മേഖലയിലെ പുനരുജ്ജീവനവും സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

ബംഗ്ലാദേശിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം നിലനിർത്തി

സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നടപടികളുടെ തുടർച്ചയായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്

സമാപനസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അധ്യക്ഷനായിരിക്കും

പ്രധാന പരിപാടി ഇന്ത്യാഗേറ്റിലാണ് നടക്കുന്നത് രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനാണ് പരാക്രംപർവ് ഉദ്ഘാടനം ചെയ്തത് ജോധ്പൂരിലെ സൈനിക ആസ്ഥാനത്ത് മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന പരാക്രം പർവിന്റെ പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം പ്പിച്ചയ്തു

മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും ഹിമാചൽ പ്രദേശിലെ നിരവധി റോഡുകളും തകർന്നിട്ടുണ്ട് ലാഹൌൾ താഴ്വരയിൽ നിന്നും ആയിരത്തോളം പേരെ രക്ഷപ്പെടുത്തിയെന്ന് ശ്രീ ജയ്റാം ധാക്കൂർ പറഞ്ഞു

സമ്പദ് വ്യവസ്ഥയിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ കണ്ടെത്തുന്നതിനായി വ്യവസായ വകുപ്പ് സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു വ്യാപാരങ്ങൾ ആയാസരഹിതമായി ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഇന്ത്യ എത്തികഴിഞ്ഞെങ്കിലും ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് ശ്രീ സുരേഷ് പ്രഭു അഭിപ്രായപ്പെട്ടു

എച്ച്

ഇതേത്തുടർന്ന് ഭൂട്ടാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അന്നത്തെ സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നില്ല

സമൂഫഫ പലപ്പോഴും ഭിന്നലിംഗക്കാരോട് വിവേചനം കാട്ടുന്നതായും ഇത്തരക്കാരുടെ ജീവിതം ശോചനീയമാണെന്നും കോടതി വിലയിരുത്തി സംവരണം നടപ്പിലാക്കാൻ കോടതി സംസ്ഥാന ഗവൺമെന്റിന് ആറ് മാസത്തെ സമയം അനുവദിച്ചു ജീവിതത്തിന് സുരക്ഷിതത്വവും സമൂഹത്തിൽ തുല്യതയും വേണമെന്നാവശ്യപ്പെട്ട് രണ്ട് ഭിന്നലിംഗക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം

ഗാർഗ് പറഞ്ഞു

ഇത് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയായിരുന്നുവെന്നും ശ്രീ

കേന്ദ്ര ഗവൺമെന്റ് പണപ്പെരുപ്പം പിടിച്ച് നിർത്തുന്നതിന്റ് പ്രിപുതിയ ബോണ്ടുകൾ ഇറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

സമിതിയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മലയോര തീരദേശ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ ഉൾപ്പെടും പ്രളയബാധിത സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് പണം സ്വരൂപിക്കാൻ ചില ഉല്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പുതിയ നികുതി ചുമത്തുന്നതിന്റെ നിയമസാധുതയും മന്ത്രി തല സമിതി പരിശോധിക്കും

പുതിയ നികുതി സമ്പ്രദായത്തിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ആകാത്തിനെകുറിച്ചും ശ്രീ ജയ്റ്റ്ലി നേതൃത്വം നൽകുന്ന സമിതി വിലയിരുത്തി

ആവേശകരമായ മത്സരത്തിൽ അവസാന പന്തിലായിരുന്നു ഇന്ത്യൻ വിജയം വിശദാംശങ്ങളുമായി പ്രിയ

അവസാന പന്തുവരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ ഇന്ത്യയെ വിറപ്പിച്ചാണ് ബംഗ്ലാദേശ് കീഴടങ്ങിയത്

മഹ്മദുള്ള എ്ണ്ണ്ത അവസാന ഓവറിൽ ജയിക്കാൻ ആറ് റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യയെ കേദാർ ജാദവും കുൽദീപ് യാദവും ചേർന്ന് ്വിജയ്ത്തിൽ എത്തിക്കുകയായിരുന്നു കാലിന് പരിക്കേറ്റ് പിൻമാറിയ് കേദാർ ജഡേജ പുറത്തായശേഷം വീണ്ടും ബാറ്റിങ്ങിനെത്തുകയായിരുന്നു

പതിനെട്ടാം ഏകദിനം കളിക്കാനിറങ്ങിയ ലിട്ടൻദാസിന്റെ സെഞ്ചറിയാണ് ബംഗ്ലാദേശിനെ ഈ സ്കോറിൽ എത്തിച്ചത് കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചറി കുറിച്ച ദാസ് മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത്

പ്ലേയർ ഓഫ് ദ സീരീസ് ആയ്മി ഇന്ത്യയുടെ ശിഖർ ധവാനെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ഓഫീസറായ ശ്രീ മിശ്ര ഉടൻ ചുമതലയേൽക്കും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

മഴയോടൊപ്പമുള്ള ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ട ഭൂചലനത്തിൽ വീടിന്റെ വാതിലുകൾ ശബ്ദത്തോടെ ഇളകുകയും പാത്രങ്ങൾ മറിഞ്ഞു വീഴുകയും ചെയ്തതായി പ്രദേശവാസികൾ പറഞ്ഞു

മഴയെത്തുടർന്നുണ്ടായ അപകടങ്ങളിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തു ഉരുൾപൊട്ടിയപ്പോൾ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ആളും ഇടിമിന്നലേറ്റ് ഒരു സ്ത്രീയുമാണ് മരിച്ചത് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈകുന്നേരത്തോടെയാണ് മഴ ശക്തമായത് മൂന്നാർ തൊടുപുഴ അടിമാലി എന്നിവിടങ്ങളിലാണ് ഇടിയോടും മിന്നലോടും കൂടിയ മഴയുണ്ടായത്